മിക്ക മണ്ഡലങ്ങളിലും ലക്ഷദ്വീപ്പിലും ഭേദപ്പെട്ട പോളിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരെഞ്ഞെടുപ്പ് പ്രചാരണത്തി നായി നാളെ കോഴിക്കോട്ടെത്തും ശബരിമല അക്രമസംഭവവുമായി ബന്ധപ്പെട്ട് റിമാന്റിലായി രുന്ന കോഴിക്കോട്ടെ എന്റഡിഎ സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു അന്തരിച്ച കേരളകോൺഗ്രസ് എം ചെയർമാൻ കെ എം മാണിക്ക് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ഉച്ചകഴിഞ്ഞ് ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിംഗ്സിനെ നേരിടും

ആദ്യമണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗാണ് രേഖ പ്പെടുത്തിയത് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ടനിര ഉണ്ടെ ന്നാണ് റിപ്പോർട്ട് പല മണ്ഡലങ്ങളിലേയും പ്രശ്നബാധിത ബൂത്തു കളിൽ കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ ചിലയിടങ്ങളിൽ അക്രമമുണ്ടായി തെലു ങ്കുദേശം പാർട്ടി വൈഎസ്ആർ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ചിലയിടങ്ങളിൽ സംഘർഷമുണ്ടായി ഗുണ്ടൂരിൽ വൈഎ സ്ആർ കോൺഗ്രസ് നേതാവിന് കുത്തേറ്റു വോട്ടിംഗ് യന്ത്ര ത്തിലെ തകരാറിനെ തുടർന്ന് അനന്തപൂരിൽ ജനസേനാ സ്ഥാനാർത്ഥി വോട്ടിംഗ് യന്ത്രം തകർത്തു വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറുമൂലം ചിലയിടങ്ങളിൽ വളരെ വൈകിയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത് രാജ്യത്തെ ഏറ്റവും ചെറിയ നിയോജകമണ്ഡലമായ ലക്ഷദ്ധീ പിൽ ഭേദപ്പെട്ട പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമാണ്

പട്ടിക വർഗ്ഗക്കാർക്കായി സംവരണം ചെയ്ത മണ്ഡല മാണ് ലക്ഷദ്വീപിലേത്

ആന്ധ്രപ്രദേശ് സിക്കിം അരുണാചൽപ്രദേശ് നിയമസഭാമ ണ്ഡലങ്ങളിലെ വോട്ടെടുപ്പും ഇതോടൊപ്പം നടക്കുന്നു

എന്നാൽ വടക്ക് കിഴക്കൻ സംസ്ഥാ നങ്ങളിലും ഇടത് തീവ്രവാദ ബാധിത പ്രദേശങ്ങളിലും വൈകിട്ട് മൂന്നിനും നാലിനും അഞ്ചിനും പോളിങ് അവസാനിക്കും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

തെരെഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കോഴിക്കോട്ടെത്തും എൻഡിഎയുടെ തെരെഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വൈകിട്ട് ആറിന് കടപ്പുറത്ത് നട ക്കുന്ന വിജയ്സങ്കൽപറാലിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും കോഴിക്കോട് വയനാട് മലപ്പുറം കണ്ണൂർ കാസർകോട് പാല ക്കാട് ജില്ലകളിലെ എൻഡിഎ സ്ഥാനാർത്ഥികളും നേതാക്കളും പങ്കെടുക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കോഴി ക്കോട് നഗരത്തിലും കടപ്പുറത്തും കനത്ത സുരക്ഷ ഏർപ്പെടു ത്തും ബിജെപി അധ്യക്ഷൻ അമിത്ഷാ വയനാടിനെ അപമാനിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി അമിത്ഷായ്ക്ക് വയനാടിന്റെ ചരിത്രം അറിയില്ലെന്നും സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെ ടുത്താലേ ചരിത്രം മനസ്സിലാകൂവെന്നും പിണറായിട്ടി പറഞ്ഞു കൽപറ്റയിൽ എൽഡിഎഫ് തെരെഞ്ഞെട്ടുപ്പ് പൊതു യോഗ ത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി എൽഡിഎഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണാർത്ഥം കൽപറ്റയിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ കൽപറ്റ്യിൽ റോഡ്ഷോ സംഘടി പ്പിച്ചു

മന്ത്രിമാരായ കെകെ ശൈലജ കടന്നപ്പളളി രാമചന്ദ്രൻ എം എം മണി വി എസ് സുനിൽകുമാർ എന്നിവർ റോഡ്ഷോയിൽ പങ്കെടുത്തു എല്ലാം വർഗീയമായി കാണുന്നതാണ് ആർഎസ്എസ് രീതി യെന്നതിന്റെ തെളിവാണ് അമിത്ഷായുടെ വയനാട് മണ്ഡലത്തെ സംബന്ധിച്ച പരാമർശുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു രാഹുലിനെ വയനാട്ടിൽ മത്സരിപ്പിക്കുമ്പോൾ ആർഎസ്എസ് വർഗീയ പ്രചാരണം നടത്തു മെന്ന് കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ടിയിരുന്നുവെന്നും അദ്ദേഹം പാല ക്കാട്ട് പറഞ്ഞു ശബരിമല അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് റിമാൻഡിലുളള കോഴിക്കോട് ലോക്സഭാമണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി പ്രകാ ശ്ബാബുവിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു

ലോക്സഭാ തിരഞ്ഞെടുപ്പിന് സുരക്ഷയൊരുക്കാൻ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് വയനാട് ജില്ലയിലെത്തി

മാനന്തവാടി സുൽത്താൻബത്തേരി കൽപ്പറ്റ ലക്കിടി മീനങ്ങാടി പുൽപ്പള്ളി തൊണ്ടർനാട് എന്നിവി ടങ്ങളിൽ വിവിധ ദിവസങ്ങളിലായി സേനയുടെ നേതൃത്വത്തിൽ റൂട്ട്മാർച്ച് നടത്തി

കണ്ണൂർ ജില്ലയിലെ എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിങ് നട ത്താൻ തീരുമാനം

വാട്ടർ അതോറിറ്റിയുടെയും മറ്റു പ്രവൃത്തികൾ നിർത്തിവയ്ക്കാനാണ് നിർദ്ദേശം അന്തരിച്ച കേരള കോൺഗ്രസ് എം ചെയർമാനും മുൻമന്ത്രി യുമായ കെ എം മാണിയുടെ സംസ്കാർം വൈകിട്ട് മൂന്നിന് ഔദ്യോഗിക ബഹുമതികളോടെ പ്രാലാ ക്ത്തീഡ്രൽ പളളി സെമി ത്തേരിയിൽ നടക്കും ഉച്ചകഴിഞ്ഞ് രണ്ടേകാൽ മുതൽ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും ഇപ്പോൾ പാലായിലെ കരിങ്ങോഴക്കൽ വീട്ടിൽ പൊതുദർശനത്തിന് ഒവച്ച ഭൌതികദേഹത്തിൽ നൂറുകണ ക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് നടൻ മമ്മൂട്ടി ചലച്ചിത്രസംവിധായകൻ രഞ്ജിപണിക്കർ വിവിധ ക്രൈസ്തവ സഭാ മേധാവികൾ തുടങ്ങി പ്രമുഖർ അന്ത്യാ ഞ്ജലി അർപിച്ചു ഉച്ചക്ക് രണ്ടിന് മൃതദേഹം വിലാപയാത്രയായി പാലാ സെന്റ് തോമസ് കത്തീഡ്രൽ പളളിയിലേക്ക് കൊണ്ടുപോ കും മൂന്നുമ്ണിയോടെ പ്രാർത്ഥനകൾ നടക്കും കർദിനാൾ സിറിൽ മാർ ബസേലിയോസ് മാർ ജോസഫ് കല്ലറങ്ങോട്ട് എന്നിവർ ചട ങ്ങുകൾക്ക് നേതൃത്വം നൽകും സംസ്കാരത്തിന് ശേഷം പാരിഷ് ഹാളിൽ അനുശോചന സമ്മേളനവും ചേരും അടുത്ത അധ്യയനവർഷം മുതൽ എല്ലാ ക്ലാസുകളിലും സിബി എസ്ഇ ആർട്ട്സ് വിഷയങ്ങൾ നിർബന്ധമാക്കി പാചകസംബ ന്ധമായ ആർട്ടിന്റെ ഭാഗമായി ആറു മുതൽ എട്ടുവരെ ക്സാസുക ളിൽ പാചക ക്ലാസുകളും ആരംഭിക്കണമെന്ന് സിബിഎസ്ഇ നിർദേശിച്ചു ആഴ്ചയിൽ ആർട്ട്സ് വിഷയങ്ങൾക്ക് രണ്ട് പിരി യിഡെങ്കിലും നിർബന്ധമായി മാറ്റിവെയ്ക്കണമെന്ന് എല്ലാ സ്കൂളുകളോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് സിബിഎസ്ഇ ന്യൂഡൽഹിയിൽ അറിയിച്ചു ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥൻ റോയൽസ് ചെന്നൈ സൂപ്പർകിംഗ്സിനെ നേരിടും രാത്രി എട്ടിന് ജയ്പൂരി ലാണ് മത്സരം ഇന്നലെ മുംബൈ ഇന്ത്യൻസ് മൂന്ന് വിക്കറ്റിന് കിംഗ്ഇലവൻ പഞ്ചാബിനെ തോൽപിച്ചിരുന്നു സംസ്ഥാനത്ത് ചൂട് കനത്ത സാഹചര്യത്തിൽ ജനങ്ങൾക്ക് കൂടിവെള്ളം ലഭിക്കാത്ത സ്ഥിതിയുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്ക ണമെന്ന് ചീഫ് സെക്രട്ടറി ടോം ജോസ് ജില്ലാകള്ക്ടർമാർക്ക് നിർദ്ദേശം നൽകി ജില്ലയിലെ സ്ഥിതി കളക്ടർമാരുടെ വീഡിയോ കോൺഫറൻസിലൂടെ ചീഫ് സെക്രട്ടറി വിലയിരുത്തി വാട്ടർ അതോറിറ്റി ജലസേചന വകുപ്പുകളൂടെ എൻജിനിയർമാരെ ഉൾപ്പെടുത്തി ജില്ലകളിൽ പ്രത്യേക ട്രീം ്ജില്ലാ കളക്ടർമാർ രൂപീ കരിക്കാനും തീരുമാനമായി

സംസ്ഥാനത്ത് വയനാട് ഒഴികെ ജില്ലകളിൽ നാളെ വരെ താപ നില ശരാശ രി യിൽനിന്ന് രണ്ട് മുതൽ മൂന്നു ഡിഗ്രിവിരെ ഉയരാൻ സാധൃതയുണ്ടെന്ന് സംസ്ഥാന ദുരന്തനിവാ രണ അതോറിറ്റി മുന്നറിയിപ്പുനൽകി ഈ സാഹചര്യത്തിൽ സൂര്യാഘാതം ഒഴിവാക്കാൻ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്ത ണമെന്നും അതോറിറ്റി അറിയിച്ചു

ആചാരപ്രകാരമുളള സമയത്തുതന്നെ വെടിക്കെട്ട് നടത്താമെന്നും പടക്കങ്ങൾ കേന്ദ്ര ഏജൻസിയുടെ അനുമതിയോടെ ഉപയോഗിക്കണമെന്നും കോടതി നിർദേശിച്ചു പൂരപ്രേമികളുടെ ഇഷ്ട ഗജവീരൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ ഉത്സവങ്ങളിൽ എഴുന്നള്ളിക്കുന്നതിനു വനംവകുപ്പ് ഏർപ്പെടുത്തിയ നിരോധനം നീക്കി എന്നാൽ ആനയെ തൃശൂർ ജില്ലക്ക് പുറത്തേക്കു കൊണ്ടുപോകുന്നതിനും ആഴചയിൽ മൂന്നു തവണയിൽ കൂടുതൽ എഴുന്നള്ളിക്കുന്നതിനും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ തുടരും ഓച്ചിറയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ രാജസ്ഥാൻ സ്വദേശിയായ പെൺകുട്ടിയുടെ വയസ്സ് തെളിയിക്കുന്നതിന് ബന്ധുക്കൾ ഹാജരാക്കിയ രേഖ യഥാർത്ഥമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു രാജസ്ഥാനിൽ പെൺകുട്ടി പഠിച്ച സ്കൂളിലെത്തി ടി

പരിശോധിച്ചാണ് ജനനതീയതി സ്ഥിരീകരിച്ചത്

ഇതോടെ മുഖ്യപ്രതി മുഹമ്മദ് റോഷനെതിരെ പോക്സോ പ്രകാര്യം കേസ്സ് നിലനിൽക്കും റിമാൻഡിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങിയ ഇയാളെ ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കി ബന്ധുക്കൾ ക്കൊപ്പം പോകാൻ വിസമ്മതിച്ച പെൺകുട്ടിയെ കോട്തിയൂടെ നിർദ്ദേശപ്രകാരം ജില്ലാ മഹിളാമന്ദിരത്തിൽ ആണ് താമസിപ്പിച്ചിരിക്കുന്നത് വയനാട് ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് യുണിറ്റിൽ വെള്ളമില്ലത്തിനെ തുടർന്ന് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഡയാലിസിസ് ചെയ്യാൻ എത്തിയ രോഗികൾ വലഞ്ഞു

നാല് മണിക്കൂറുകൊണ്ട് ചെയ്യണ്ടേത് രണ്ടു മണിക്കുറുകൊണ്ട് അവസാനിപ്പിച്ചതായും ഇത് കൊണ്ട് പലരോഗികൾക്കും ബുദ്ധിമുട്ടുകൾ അനുഭപ്പെടുന്നതയും രോഗികളുടെ ബന്ധുകൾ പറഞ്ഞു വെള്ളത്തിന്റെ പ്രശനം അടിയന്തരമായി പരിഹരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡണ്ട് കെ ബി നസീമ പറഞ്ഞു ചെരുപ്പ് തുന്നുന്നവർക്ക് ഏകീകരിച്ച പുനരധിവാസ മേഖല ഒരുക്കി സംസ്ഥാനത്തെ ആദ്യ നഗരസഭയായി മാനന്തവാടി നഗരസഭ ദേശിയ നഗര ഉപജീവന മിഷനിലൂടെ നഗരദരിദ്രരുടെ ഉപജീവന മാർഗ്ഗം മെച്ചപ്പെടുത്തി ദാരിദ്ര്യം ലഘൂകരിക്കുക എന്ന ലക്ഷത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്

ശബരിമലയിൽ മേടമാസപൂജകൾക്ക് പുലർച്ചെ തുടക്കമായി

വേനലവധിക്കാലമായതോടെ കണ്ണൂർ നഗരത്തിൽ ഗതാഗതകു രുക്ക് രൂക്ഷമായി പുതിയസ്റ്റാന്റ് റോഡ് ദേശീയപാതയിൽ താഴെ ചൊവ്വ റോഡ് തളാപ്പ് റോഡ് എന്നിവിടങ്ങളിൽ വാഹനകുരുക്ക് രൂക്ഷമാണ് കൂടുതൽ ആളുകൾ സ്വന്തർ ്വാഹനങ്ങളുമായി റോഡി ലേക്കിറങ്ങുന്നതാണ് ഗതാഗതകുരുക്കിന് കാരണമെന്ന് വിലയിരു ത്തപ്പെടുന്നു ഭരണഘടന ഓരോ പൌരനും അനുവദിച്ചുതന്ന വിശ്വാസ സ്വാത ന്ത്ര്യത്തെ സംരക്ഷിക്കുന്നതിന് സമ്മതിദാനാവകാശം ഉചിതമായ രീതിയിൽ വിനിയോഗിക്കണമെന്ന് കേരള ക്ഷേത്രസംരക്ഷണസമിതി പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തൃശൂ രിൽ ചേർന്ന് സമിതി യോഗത്തിലാണ് ഇതുസംബന്ധിച്ച തീരുമാന മെടുത്തത്